ദേശീയപാത വികസനം സംബന്ധിച്ച കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്രം ന് അംഗീകരിച്ചു ഈ മാസം കരാർ ഒപ്പുവയ്ക്കും

നാലാമത്തെ മൽസരത്തിൽ ഇന്ത്യയ്ക്ക് ജയം

വിദേശത്തെ ഇന്ത്യൻ എംബസികളിലും ആഘോഷ പരിപാടികൾ നടക്കും രാജ്യത്തെ ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും രാഷ്ട്രപിതാവ് അന്തൃവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തും രാജ്ഘട്ടിൽ സർവ്വമതപ്രാർത്ഥനയും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥനാ സഭ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പങ്കെടുക്കും

അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ ഇന്ന് വൈകുന്നേരം സംഘടിപ്പിക്കുന്ന മഹാത്മാഗാന്ധി അനുസ്മരങ്ങ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഒറ്റത്തവണ ഉപയ്ക്കുക്ടിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിർത്തലാക്കുക എന്ന ലക്ഷ്യത്ത്മോർടെ സബർമതി ആശ്രമ പരിസരത്ത് നിന്ന് പ്ലാസ്റ്റിക്ക് നീക്കം ച്ചെയ്യൂന്ന് ശുചീകരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും തുടർന്ന് സ്ബർമ്തി നദീതീരത്ത് ഇരുപതിനായിരത്തോളം ഗ്രാമത്തല്പ്പൻമ്ാരുടെ സാന്നിദ്ധ്യത്തിൽ നടക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ വെളിയിട്ടു പ്പിസർജ്ജനമുക്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും സാമുദായിക് ഐകൃത്തിന്റെ പ്രാധാന്യം ആഗോളജനതയ്ക്ക് മനസ്സിലാക്കിക്കൊടുത്ത മര്കുർണ്ണ് മഹാത്മാഗാന്ധി എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്നലെ ന്ത്ൽകിയ സന്ദേശത്തിൽ പറഞ്ഞു കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ്മന്ത്രി പ്രകാശ് ജാവദേക്കർ മഹാത്മാഗാന്ധിക്ക് ആദരം അർപ്പിച്ച് ഹെയ് റാം ഷോർട്ട്ഫിലിം ഇന്നലെ പ്രകാശനം ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന ഗാന്ധി സങ്കൽപ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും രാജ്യവ്യാപകമായി കോൺഗ്രസ്സ് സംഘടിപ്പിക്കുന്ന പദയാത്രയിൽ കോൺഗ്രസ്സ് നേതാവ് രാഹുൽഗാന്ധിയും കോൺഗ്രസ്സ് ഇടക്കാല അദ്ധ്യക്ഷ സോണിയാഗാന്ധിയും പങ്കെടുക്കും

ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദക്ഷിണേഷ്യ ഫൌണ്ടേഷന്റെ പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെയും നേപ്പാളിലേയും പ്രശസ്തരായ ഫാഷൻ ഡിസൈനർമാരും സിനിമാ മേഖലയിലെ പ്രമുഖരും ഫാഷൻ ഷോയിൽ പങ്കെടുക്കും

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ലാൽബഹാദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലമായ ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തും

ജയ് ജവാൻ ജയ് കിസാൻ എന്ന വിഖ്യാത മുദ്രാവാകൃത്തിന്റെ ഉപജ്ഞാതാവും ലാൽബഹാദൂർ ശാസ്ത്രിയാണ്

ജമ്മു കശ്മീരിലെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതുൾപ്പെട്ടെയ്ുള്ള പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങളെ മറയ്ക്കാൻ വേണ്ടി മനപൂർവ്വ് കെട്ടിച്ചുമച്ചു ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിച്ചതെന്നും വക്താവ് പറഞ്ഞു ജമ്മു കശ്മീരിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും നിയന്ത്രണങ്ങൾ കൂടാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു

കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ് ഗഡ്ഗരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

യുടെ വയനാട് സന്ദർശ്നം മറ്റന്നാളത്തേക്ക് മാറ്റിവച്ചു

രാഹുൽഗാന്ധി നാളെ സന്ദർശിക്കുമെന്മായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്

സമരത്തിന് പിന്തുണ നൽകി ഒരു മണിക്കൂർ സമരപ്പന്തലിൽ രാഹ്റുൽ ്ഗാന്ധി ഉപവസിക്കും

ഗംഗ പുൽപുൻ ബൂഡി ഗണ്ഡക് തുടങ്ങിയ നദികളിൽ നീരൊഴുക്ക് അപകട നിരപ്പിന് മുകളിലാണ് കൂടുതൽ സ്ഥലങ്ങളിലേയ്ക്ക് പ്രളയം വ്യാപിക്കുന്നുണ്ട്

പട്നയിൽ മാത്രം മൂന്ന് ലക്ഷം പ്രളയബാധിതരുണ്ടെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

ഇന്നലെ മുതൽ തന്നെ മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ രാജ്യമെമ്പാടും ആരംഭിച്ചിരുന്നു രാജ്യത്തെ പ്സാസ്റ്റിക് വിമുക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞ ഉത്തർപ്രദേശിൽ ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അദ്ധ്യക്ഷതയിൽ ലക്നൌവിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മഹാത്മാഗാന്ധിക്കും ലാൽ ബഹദൂർ ശാസ്ത്രിക്കും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു പത്ത് ദിവസം നീണ്ടുനിൽക്കുന്ന ഖാദി പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നടക്കുന്ന പരിപാടിയിൽ പത്ത് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജിയുടെ സാഹിത്യ രചനകൾ വായിച്ചു കേൾപ്പിക്കും കേന്ദ്ര പാരമ്പര്യേതര പുനരുൽപ്പാദക ഊർജ്ജ മന്ത്രാലയം ഐഐടി ബോംബെയുമായി സഹകരിച്ച് ഇന്ന് ഗ്ലോബൽ സ്റ്റുഡന്റ് സോളാർ അസംബ്ലി സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളും സംഘടനകളും സ്ഥാപനങ്ങളും വിപുലമായ ഗാന്ധിജയന്തി ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മദ്ധ്യപ്രദേശിൽ ഇന്ന് മുതൽ ഒക്ടോബർ ആറു വരെയാണ് ഗാന്ധിജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇൻഡ്യാർട്ടുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ഇന്ത്യ അത്യധികം ആഗ്രഹിക്കുന്നിതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ആർ സി

സി

ഇതാദ്യമായാണ് ട്രെയിൻ വൈകുന്നതിന് ഐ

ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഋഷഭ് പന്തിന് പകരമായി വൃദ്ധിമാൻ സാഹയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ആറു ദിവ്സ്ത്തെ സന്ദർശനത്തിനായി മാലദ്വീപിലെത്തിയ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മാലദീപ് വിദേശകാര്യമന്ത്രി ഇന്ത്യൻ സേനാംഗങ്ങളെ പ്രകീർത്തിച്ചത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം തവണ അധികാരത്തിലേറിയതിന് ശേഷവും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയതിന് ശേഷവുമുള്ള ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത്